ത സംസ്ഥാനങ്ങളിലെ കോവിഡ് വ്യാപനം കുറയ്ക്കാനും മരണനിരക്ക് ഒരു ശതമാനത്തിൽ താഴെയാക്കാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി ത കിഴക്കൻ ലഡാക്കിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധമന്ത്രിയുമായി ചർച്ച നടത്തി

കെ ശൈലജ ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും ത ഹയർ സെക്കണ്ടറി ഒന്നാം വർഷ ട്രയൽ അലോട്ട്മെന്റ് രാവിലെ പ്രസിദ്ധീകരിക്കും

തലമുറകൾക്ക് മാർഗ്ഗ ദീപമായി മാറുന്ന അധ്യാപകർക്ക് ആദരമർപ്പിക്കാൻ പ്രഗത്ഭ അധ്യാപകനും ഇന്ത്യയുടെ രണ്ടാമത് രാഷ്ട്രപതിയുമായിരുന്ന ഡോ

രാംനാഥ് രാഷ്ട്രപതി കോവിന്ദ് ന്യൂഡൽഹിയിൽ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും

വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്ക് സഹമന്ത്രി സഞ്ജയ് ധോത്രെ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും കേരളത്തിൽ നിന്ന് കൊല്ലം ചവറ സൌത്ത് തെക്കുംഭാഗം സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് തങ്കലത തങ്കപ്പൻ ദേശീയ അവാർഡിന് അർഹയായിട്ടുണ്ട് ആലപ്പുഴ നവോദയ വിദ്യാലയത്തിലെ അധ്യാപകൻ വി

അവാർഡ് ദാന ചടങ്ങ് ആകാശവാണിയും ദൂരദർശനും തത്സമയം പ്രക്ഷേപണം ചെയ്യും

പാഠ്യ പാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനം പരിശോധിച്ച് വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് ദേഴ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഫിലിംസ് ഡിവിഷൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന ഡോക്യുമെന്ററി ഇന്ന് പ്രദർശിപ്പിക്കും

രുര സംസ്ഥാനങ്ങളിലെ കോവിഡ് വ്യാപനം കുറയ്ക്കാനും മരണനിരക്ക് ഒരു ശതമാനത്തിൽ താഴെയാക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞ ഒരു മാസം രോഗവ്യാപനവും മരണവും കൂടിയ തോതിൽ റിപ്പോർട്ട് ചെയ്ത അഞ്ച് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാരുമായി നടത്തിയ അവലോകന യോഗത്തിലാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടരി രാജേഷ് ഭൂഷൺ നിർദ്ദേശം മുന്നോട്ടു വെച്ചത് വീടുകളിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യം കൃത്യമായി നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും ഫലപ്രദമായ നടപടികൾ ആവിഷ്കരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു

രേര മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ഡൌൺ ഒഴിവാക്കി കണ്ടെയൻമെന്റ് സോണുകൾ ഒഴികെ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സമയ നിയന്ത്രണവും പിൻവലിച്ചിട്ടുണ്ട് ഭക്ഷണശാലകളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അനുമതി നൽകി ജില്ലാ കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു കോവിഡ് പ്രതികൂല സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വയോജന ക്ഷേമ കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കളമശ്ശേരി വനിത ഐ ടി ഐയിൽ സജ്ജീകരിച്ച കോൾ സെന്റർ മന്ത്രി കെ കെ ശൈലജ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു

രുമ പൂർണ്ണമായി ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഒരു കോവിഡ് വാക്സിനും ശുപാർശ ചെയ്യില്ലെന്ന് ലോകാരോഗ്യ സംഘടനാ സെക്രട്ടറി ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് അറിയിച്ചു പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പ് നൽകാനാണ് ലോകാരോഗ്യ സംഘടന ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം ജനീവയിൽ വ്യക്തമാക്കി

രുമ നാഷണൽ ഡിഫൻസ് അക്കാദമി നേവൽ അക്കാദമി പ്രവേശന പരീക്ഷകൾ മുൻനിർത്തി ഇന്നും നാളെയും കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളായ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി

മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദർ തെരേസക്ക് സ്മരണാഞ്ജലി അർപ്പിക്കും ദേദ കിഴക്കൻ ലഡാക്കിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രി ജനറൽ വെയ്ഫങുമായി മോസ്ക്കോയിൽ ചർച്ച നടത്തി അതിർത്തിയിലെ തർക്കം ഒഴിവാക്കാൻ ആവശ്യമായ മാർഗ്ഗങ്ങൾ കേന്ദ്രീകരിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ചർച്ച ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിതല ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു രാജ്നാഥ് സിംഗും വെയ്ഫങും

ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായ നാല് നിലകളാണ് ഇന്ന് തുറക്കുന്നത്

പികൾ കമ്പ്യൂട്ടർവൽക്കരിച്ച ലാബ് എക്സ്റേ സ്കാൻ സൌകര്യം പേ വാർഡുകൾ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മുറികൾ ഓഫീസ് എന്നിവ പുതിയ കെട്ടിടത്തിലുണ്ട് രദേ ഹയർ സെക്കണ്ടറി ഒന്നാം വർഷ പ്രവേശന ട്രയൽ അലോട്ട്മെന്റ് രാവിലെ ഒമ്പതിന് പ്രസിദ്ധീകരിക്കും

തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അന്നു വൈകിട്ട് അഞ്ചിന് മുമ്പ് ആപ്പിക്കേഷൻ എഡിറ്റ് ലിങ്കിലൂടെ നൽകാവുന്നതാണ് ഗവൺമെന്റ് എയ്ഡഡ് ഹൈസ്കൂളുകളിലും ഹയർ സെക്കണ്ടറി സ്കൂളുകളിലും ഹെൽപ് ഡെസ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് രദര കൺസ്യൂമർ ഫെഡിലെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഇന്നത്തെ പണിമുടക്കിൽ നിന്നു പിന്മാറണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭ്യർത്ഥിച്ചു ഇന്നലെ ട്രേഡ് യൂണിയനുകളുമായി മന്ത്രി ചർച്ച നടത്തി

രുമ ഇടുക്കി പെട്ടിമുടിയിലെ രക്ഷാദൌത്യം പൂർത്തിയാക്കിയതായി പ്രത്യേക സംഘം കലക്ടർക്ക് റിപ്പോർട്ട് നൽകി

രെര കണ്ണൂർ ജില്ലയിലെ ന്യൂമാഹി ഗ്രാമ പഞ്ചായത്തിൽ നടപ്പാക്കിയ സ്മാർട്ട് കോളർ സംവിധാനം ഏറെ ശ്രദ്ധേയമാവുന്നു ആകാശവാണി ജില്ലാ പ്രതിനിധി കെ

എം നേതൃത്വത്തെയും മാഫിയകളാണ് നിയന്ത്രിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി

സംസ്ഥാന ഭരണത്തെ നിയന്ത്രിക്കുന്നത് സ്വർണ്ണക്കടത്ത് മാഫിയയും പാർട്ടിയെ നിയന്ത്രിക്കുന്നത് മയക്കുമരുന്ന് മാഫിയയുമാണെന്ന് അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റ് രവി തേലത്തിന്റെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷ്ണകുമാർ രുദ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ

പാർട്ടി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും ദേദ പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലിരിക്കെ മരിച്ച മത്തായിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും ഇന്നലെ പ്രത്യേക സി ബി ഐ സംഘം മൃതദേഹം റീ പോസ്റ്റുമോർട്ടം ചെയ്തിരുന്നു

ബി

രുര കണ്ണൂർ പിലാത്തറയ്ക്കടുത്ത് കണ്ടോന്താർ ജയിലിൽ ചരിത്ര മ്യൂസിയം സ്ഥാപിക്കാൻ നടപടി തുടങ്ങി

ദേദ തലശ്ശേരിക്കടുത്ത് പൊന്ന്യത്ത് ബോംബ് സ്ഫോടനത്തിൽ മൂന്നുപേർക്ക് പരിക്കേറ്റു ചുണ്ടങ്ങാപ്പൊയിൽ തെക്കേത്തൈയിലാണ് സംഭവം